കേസ് വിധി പറയാൻ മാറ്റി സംസ്ഥാനത്തെങ്ങും കനത്ത മഴ മലയോരങ്ങളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം വർധി

സംശയത്തിന്റെ പേരിലാണ് ഉന്നത പദവിയിലിരിക്കുന്ന ശാസ്ത്രജ്ഞനെ പൊലീസ് അറസ്റ്റ് ചെയ്തതെന്നും അത്തരമൊരു നടപടിയുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകേണ്ടതാണെന്നും കേസിന്റെ വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു ചാരക്കേസ് അന്വേഷിച്ച മുൻപൊലീസ് ഉദ്യോഗസ്ഥർക്കെ തിരെ നടപടി ആവശ്യപ്പെട്ട് നമ്പിനാരായണൻ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി വാക്കാൽ ഇക്കാര്യം പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥ രിൽ നിന്നാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടതെന്നും കോടതി പറഞ്ഞു കേസ് വിധി പറയാനായി മാറ്റി കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം വേണ മെന്ന് സി ബി ഐ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു നമ്പിനാരായണനെ കസ്റ്റഡിയിലെടുത്തുൾപ്പെടെ കാര്യ ങ്ങൾ അന്വേഷിക്കണമെന്നും അന്വേഷണം കോടതി നിരീ ക്ഷണത്തിലാവണമെന്നും സി ബി ഐ അഭിപ്രായപ്പെട്ടു നമ്പി നാരായണന്റെ പേരിലുളള കേസ് തെറ്റാണെന്ന് സി ബി ഐ റിപ്പോർട്ട് നൽകുകയും കോടതി അത് അംഗീകരി ക്കുകയും ചെയ്തു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജ്സ്റ്റിസ് എ എൻ ഖാൻവിൽക്കർ ഡിവൈ ചന്ദ്രചൂഡ് റോഹിങ്ടൺ നരിമാൻ ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വിലക്കുന്നത് പ്രഥമ ദൃഷ്ടിറ്റ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രിം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു

ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം പാടില്ലെന്ന ചട്ടം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം

അതേസമയം ജനപ്രതിനിധികൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അവർ മുഴുസമയ ഗവൺമെന്റ് ജീവനക്കാരല്ലെന്നും കേന്ദ്ര ഗവൺമെനറ് നിലപാട് അറിയിച്ചിട്ടുണ്ട്

ഡൽഹി പാട്യാല ഹൌസ് കോടതിയാണ് ഇരുവർക്കും ജാമ്യം നീട്ടി നൽകിയത്

ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നു വയനാട്ടിലും ഇടു ക്കിയിലും എറണാകുളത്തും കോട്ടയത്തുമാണ് ശക്തമായ മഴ മലബാറിലും വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് മണിയൻകോട് കെ എസ് ഇ ബി സബ്സ്റ്റേഷനിൽ വെളളം കയറിയതിനെ തുടർന്ന് കുടുങ്ങിപ്പോയ മൂന്ന് ജീവനക്കാരെ പൊലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി

മേപ്പാടിയിൽ രണ്ട് വീടുകൾക്കുമുകളിലും പന മരത്ത് പെട്രോൾ പമ്പിന് മുകളിലും മണ്ണിടിഞ്ഞ് വീണെങ്കിലും ആളപായമില്ല ജില്ലയിൽ വൻ നാശനഷ്ടമാണ് കാലവർഷം വരുത്തിവെച്ചത്

നൂറോളം കുടും ബങ്ങളെ വിവിധ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ജില്ല യുടെ പല ഭാഗത്തും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി യുണ്ടെന്നും ജനങ്ങൾ യാത്ര ഒഴിവാക്കണമെന്നും ജില്ലാഭര ണകൂടം മുന്നറിയിപ്പ് നൽകി അതിനിടെ കബനി നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ബീച്ചനഹളളി ഡാം തുറക്കണമെന്ന് വയനാട് ജില്ലാ കലക്ടർ മൈസൂർ ഡെപ്യൂട്ടി കമ്മീഷണറോട് ആവശ്യപ്പെട്ടു

മലയോരമേഖലകളിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നവർക്ക് നിയന്ത്രണമേർപ്പെടുത്തി മലയോരങ്ങ ളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാഭര ണ കൂടങ്ങൾ മുന്നറിയിപ്പ് നൽകി കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുളളതിനാൽ തീരപ്രദേശ ങ്ങളിലെത്തുന്നവർ വെളളത്തിലിറങ്ങരുതെന്നും അധി കൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

മുംബൈ നഗരത്തിൽ റോഡ് റെയിൽ ഗതാഗതം ത്ടസ്സപ്പെട്ടു മഴ രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം വർധിപ്പിക്കാൻ ഉതകും വിധം മത്സ്യകൃഷി വിപുലപ്പെടുത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി

മികച്ച മത്സൃ കർഷകർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു

എറണാകുളം കൊല്ലം തിരുവനന്തപുരം സ്റ്റേഷനുകളിലാണ് പ്രിശോധന നടന്നത്

എട്ട് ലക്ഷത്തിലധികം വീടുക ളുടെ നിർമ്മാണം പൂർത്തിയായിക്കഴിഞ്ഞുവെന്നും എട്ട് ലക്ഷത്തോളം വീടുകളിൽ ഗുണഭോക്താക്കൾ താമസം തുടങ്ങിക്കഴിഞ്ഞുവെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു പദ്ധതിയുടെ കീഴിൽ വീടുകളുടെ നിർമ്മാണത്തിലു ണ്ടായ കുറവ് നികത്താനാണ് ഗ്ലോബ്ലർ ഹൌസിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ചലഞ്ച് നടപ്പിലാക്കുന്ന തെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാ ണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ലക്കകകകകകകകകകകകകക മഹാരാജാസ് കോളജിലെ വിദ്യാർത്ഥി അഭിമന്യു വധ ക്കേസിൽ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എറണാകുളം സിറ്റി പൊലീസ് കമ്മീഷണർ എം പി ദിനേശ് അറിയിച്ചു പിടിയിലായവരെല്ലാം മുഖ്യപ്രതിക ളാണ് ഒരാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി

ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം

രണ്ടാം സെമിയിൽ നാളെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയുമായി ഏറ്റുമുട്ടും

കഴിഞ്ഞ മാസം ആറാം തീയതി ജമ്മുകശ്മീരിലെ ലഡാ ക്കിൽപ്പെട്ട കർദംഗിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്

നിരപരാ ധിത്വം തെളിയിക്കാമെന്നും പരാതിക്കുപിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടെന്നുമാണ് വൈദികരുടെ നിലപാട്

രണ്ടാംഘട്ടം അടുത്തമാസം തുടങ്ങും കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിലും മുൻസിപ്പാലിറ്റികളിലുമാണ് പദ്ധതി നടപ്പാക്കിയത്

കേരള ലളിതകലാ അക്കാദമി സംസ്ഥാന ഫോട്ടോഗ്രാഫി കാർട്ടൂൺ പ്രദർശനം കോഴിക്കോട് ആർട് ഗ്യാലറിയിൽ ഇന്നു മുതൽ